പൌരത്വ നിയമ ഭേദഗതി സ്റ്റ്ബെന്ധിച്ച പ്രതിഷേധങ്ങൾക്കിടെ ആക്രമണം നടത്തിയ പ്പോപ്പൂലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കണമെന്ന ആവശ്യവുമായി ഉത്തർപ്രദേശ് ഗവൺമെന്റ് കേന്ദ്രത്ത് സമീപിച്ചു

ജെ

ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന യു എസ് ഡ്രോൺ ആക്രമണത്തിൽ ഇറാൻ സേനാതലവൻ ഖാസിം സൊലമാനി കൊല്ലപ്പെട്ടു

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹ്റ്റാം വോയ്സ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപ്പക്ഷ പാർട്ടികൾ പൌരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് ആഭ്യന്തരമന്ത്രി ആരോപിച്ചു എന്നാൽ വിഷയത്തിൽ ഒരിഞ്ചു പോലും പിന്നോട്ടു പോവാൻ ഭർണ്കൂടം ഉദ്ദേശിക്കുന്നില്ലെന്നും ശ്രീ

ജോധ്പൂരിൽ പൌരത്വ ഭേദഗതി നിയമത്തെപ്പറ്റിയുള്ള പൊതു അവബോധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി കോൺഗ്രസ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പ്രതികൂല സാഹചര്യങ്ങളെ തുടർന്നാണ് അയൽ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലെത്തിയതെന്നും ഇവരുടെ മാനുഷികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും ശ്രീ

അയൽരാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളോട് മഹാത്മാ ഗാന്ധിയും പണ്ഡിറ്റ് നെഹ്റുവും സർദാർ വല്ലഭ് ഭായി പട്ടേലും എന്നും അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പൌരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നവർ ഈ നേതാക്കളെത്തന്നെയാണ് എതിർക്കുന്നതെന്നും ശ്രീ അമിത് ഷാ പറഞ്ഞു വിഷയത്തിൽ ചർച്ച നടത്താൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തയ്യാറാകണമെന്നും ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജി

ലക്നൌവിലും മറ്റു ജില്ലകളിലും പ്രതിഷേധങ്ങൾക്കിടെ ഉണ്ടായ അക്രമണങ്ങളിൽ പോപ്പൂലർ ഫ്രണ്ടിന്റെ പങ്ക് വ്യക്തമാകുന്ന ധാരാളം തെളിവുകൾ പൊലീസിന്റെ പക്കലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ ബി ജെ

ന്യൂഡൽഹിയിൽ ബി ജെ

ആസ്ഥാനത്ത് പാർട്ടി ജനറൽ സെക്രട്ടറി ഡോ

സമ്പർക്ക പരിപാടിയ്ക്ക് വർക്കിംഗ് പ്രസിഡന്റ് ജെ

കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള പാർട്ടിയുടെ മുൻനിര നേതാക്കളെല്ലാം രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കുചേരുമെന്ന് ശ്രീ

പാർട്ടി പ്രവർത്തകരും നേതാക്കളും മൂന്നു കോടി കുടുംബങ്ങളെ നേരിട്ടു കാണും പൌരത്വ ഭേദഗതി നിയമത്തിന്മേലുള്ള പ്രതിപക്ഷത്തിന്റെ പ്രചരണത്തെ മറികടക്കാനായി ഇതിനകം തന്നെ നേതാക്കൾ പൊതു ചർച്ചകളും പത്രസമ്മേളനങ്ങളും സംഘടിപ്പിച്ചു വരികയാണ്

ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സൂരജ് പാർക്ക് രാജാ വിഹാർ എന്നീ കോളനികളിലെ താമസക്കാർക്കാണ് ആദ്യ ഘട്ടമായി കൈവശാവകാശ രേഖകൾ കൈമാറിയത് ഇതോടെ എൻ ഡി എ ഗവൺമെന്റ് കോളനി നിവാസികൾക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നതായി ശ്രീ

ഉടമസ്ഥാവകാശ രേഖ നൽകുമ്പോൾ രജിസ്ട്രേഷൻ ഫീസിനത്തിലും സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിലും ലഭിക്കുന്ന തുക ഈ കോളനികളിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി നീക്കിവയ്ക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

കേന്ദ്ര ഗവൺമെന്റിന്റ ഓരോ നിയ്മങ്ങളും ജമ്മു കാശ്മീരിനും ബാധകമാകുന്ന പശ്ചാത്തലത്തിൽ പഴയകാര്യങ്ങൾ പലതും മറക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു പൌരത്വ നിയമ ഭേദഗതി കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകശ്മീരിലും പ്രാവർത്തികമാക്കുമെന്നും അടുത്തപടിയായി അവിടെ അനധികൃതമായി കഴിയുന്ന റോഹിംഗൃകളെ പുറത്താക്കുമെന്നും ഡോ

നിയമസർവ്വകലാശാല മുൻധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ നാമധേയത്തിൽ സ്റ്റേഡിയം എന്നിവ നിർമ്മിക്കുന്നതിന് പുറമെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ബഞ്ചും ജമ്മു കാശ്മീരിൽ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

പരിക്കേറ്റ സൈനികരെ വ്യോമമാർഗ്ഗം ഉധംപൂരിലെ ആർമി ആശുപത്രിയിലേക്ക് മാറ്റി

പ്രവാസി സമൂഹത്തെ സംബന്ധിച്ച വിവിധ വിഷയങ്ങളുടേയും നിക്ഷേപ അവസരങ്ങളുടേയും വിപുലമായ ചർച്ചയാണ് ലോക കേരള സഭയിൽ നടന്നത് കേരളത്തിലെ പ്രശ്നങ്ങളും പരിഹാരസാധ്യതകളും പ്രഖ്ചചെയ്യാൻ കേരളത്തല ഹാക്കത്തോൺ ഈ വർഷം തന്നെ സുഷ്ലടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ലോക കേരള സഭയുടെ സമാപനത്തോടനുബന്ധിച്ച് മറുപ്ടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം പ്രവാസികൾ അപ്പത്രിപ്പിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിർദ്ദേശങ്ങൾ പരിഗണിക്കാന്ദും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വൃക്തമാക്കി

ലോൺ ആശുപത്രിയിലെ ശിശുമരണങ്ങളെപ്പറ്റി പഠിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ അയച്ചു ജോധ്പൂർ എയിംസിലെ വിദഗ്ധർ ജയ്പൂർ ആരോഗ്യസേവന പ്രാദേശിക മേധാവി ശിശുരോഗ വിദഗ്ധർ തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് സംഘം ആശുപത്രിയിലെ സ്ഥിതിഗതികൾ പരിശോ്ധിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നത് ലക്ഷ്യമിട്ടാണ് വിദഗ്ധ സംഘത്തെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നിയോഗിച്ചിരിക്കുന്നത്

ഇവരുടെ മോചനം സംബന്ധിച്ച് കശ്മീർ ഭരണകൂടം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തിയതിനാണ് മുൻ മുഖ്യമന്ത്രിമാരായ ഫറുഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള മെഹ്ബൂബ മുഫ്തി എന്നിവരെ തടവിലാക്കിയതെന്ന് ശ്രീ

മരണം അമേരിക്കയും ഇറാനും സ്ഥിരീകരിച്ചു

ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെ നടന്ന അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിലാണ് ഇറാൻ കുദ് സേനാതലവനായ സൊലമാനി കൊല്ലപ്പെട്ടത്

ഇവരിൽ ഇറാക്കി ്വിമത സേനാ തലവൻ അബു മഹ്ദി അൽ മുഹന്ദിയും ഉൾപ്പെടുന്നതായി ഇറാൻ റെവലൂഷണറി ഗാർഡ് വൃത്തങ്ങൾ അറിയിച്ചു സൊലമാനിയുടെ മരണം ഇറാൻ ദേശീയ മാധ്യമവും സ്ഥിരികരിച്ചിട്ടുണ്ട് ബാഗ്ദാദിലെ അമേരിക്കൻ നയതന്ത്ര കാര്യാലയം പ്രക്ഷോഭകാരികൾ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഈ അമേരിക്കൻ നീക്കമെന്നതും ശ്രദ്ധേയമാണ്

വിദേശത്തുള്ള യു

എന്നാൽ സൊലമാനിയുടെ കൊലപാതകം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു